നാടിന്റെ അന്ത്യാഞ്ജലി

ഐ എ

ഐ സി

ഇർഫാൻ ഒളിമ്പിക്സ് യോഗൃത നേടി

സംസ്ക്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകിട്ട് നടക്കും

ഇന്ന് രാവിലെ ഒൻപതുരിയോടെ പഞ്ചിമിലെ ബിജെപി ആസ്ഥാനത്ത് എത്തിക്കുന്നു മൃതദ്ദേഹം പതിനൊന്ന് മണി മുതൽ കലാ അക്കാഡമിയിൽ പ്പൊതുദർശനത്തിന് വയ്ക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതീക്കളോടെ സംസ്ക്കാരം വൈകിട്ട് അഞ്ച് മണി മുതൽ നടക്കും ഗോവയിൽ ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രഗവൺമെന്റ് ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടും കേന്ദ്ര ക്യാബിനറ്റ് അടിയന്തര യോഗം ചേർന്ന് പരീക്കറുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പിരിഞ്ഞു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

അരുണാചൽ പ്രദേശിൽ രണ്ട് അസ്റ്റമിൽ മൂന്ന് ബിഹാറിൽ നാല് ജമ്മുകാശ്മീരിൽ രണ്ട് മഹാരാഷ്ട്രയിൽ ഏഴ് മേഘാലയയിൽ രണ്ട് ഉത്തർപ്രദേശിൽ എട്ട് ഉത്തരാഖണ്ഡിൽ അഞ്ച് പശ്ചിമബംഗാളിൽ രണ്ട് മണ്ഡലങ്ങളിൽ വീതവും വോട്ടെടുപ്പ് നടക്കും ഛത്തീസ്ഗഡ് മണിപ്പൂർ മിസ്നോറാം നാഗാലാന്റ് സിക്കിം ത്രിപുര ആന്റമാൻ നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലേക്കും ആദ്യഘട്ടമായ വോട്ടെടുപ്പ് നടക്കും ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും ഇന്ന് പുറപ്പെടുവിക്കും

രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടമായാണ് നടക്കുന്നത്

മുൻ രാജ്യസഭാംഗം പോൾ മനോജ് പാണ്ഡ്യൻ തിരുനെൽവേലി മണ്ഡലത്തിൽ നിന്നുംതമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിന്റെ മകൻ ഒ

രവീന്ദ്രനാഥ കുമാർ തേനി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും

എൻ ഡി എ തങ്ങളുടെ നിലവിലെ എംപി യും മുൻ കേന്ദ്ര മന്ത്രിയുമായ ഡോ അൻപുമണിരാംദാസിനെ ധർമ്മപുരിയിൽ മത്സരിപ്പിക്കും മുൻ കേന്ദ്ര മന്ത്രി എ

മൂർത്തി ആരക്കോണം സീറ്റിൽ മത്സരിക്കും

രാജ്യസഭാംഗം കനിമൊഴി തൂത്തുക്കുടിയിലുംമുൻ ടെലികോം മന്ത്രി ദയാനിധി മാരൻ സെൻട്രൽ ചെന്നൈയിലുംമുൻ കേന്ദ്രമന്ത്രി എ രാജ നീലഗിരി മണ്ഡലത്തിലും മത്സരിക്കും

എ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മൽസരിക്കുന്ന സീറ്റുക്കൾ സംബന്ധിച്ച് ധാരണയിലെത്തി

ഡി യു എൽ

പി പാർട്ടികൾ നടത്തിയ സ്റ്റ്യുക്ത പത്രസമ്മേളനത്തിലാണ് ഇക്കാരിച്ചു വ്യക്തമാക്കിയത്

ഉത്തർപ്രദേശിൽ എസ് പി ബി

മുലായംസിങ് യാദവ് ഡിംപിൾ യാദവ് എന്നിവർ മൽസരിക്കുന്ന മെയിൻപുരി കനൌജ് മണ്ഡലങ്ങളും ഫിറോസാബാദും ഇതിൽ ഉൾപ്പെടുന്നതായി ഉത്തർപ്രദേശ് കോൺഗ്രസ്സ് അധ്യക്ഷൻ രാജ് ബാബർ പറഞ്ഞു

പി നേതാവ് മായാവത് എസ് പി ദേശീയ പ്രസിഡന്റ് അഖിലേഷ് യാദവ് ആർ

ഡി നേതാവ് അജിത് സിംഗ് മകൻ ജയന്ത് സിംഗ് എന്നിവർ മൽസരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ്സ് സ്ഥാനാർത്ഥി മത്സരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

പ്രദീപ് ഭട്ടാചാര്യ പറ്റഞ്ഞു സീറ്റ് വിഷയത്തിൽ കോൺഗ്രസിനായി ദീർഘ്കാല്ം കാത്തിരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ടാണ് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചതെന്നും സി

ഐ എം സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്ര പ്രതികരിച്ചു

മോപ്തി പ്രവിശ്യയിലെ ഡിയോറ സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണമുണ്ടായത് ആഫ്രിക്കയിൽ സമാധാനം പുലരാൻ സൈനിക നടപടികൾ ശക്തമാക്കുന്നതിനിടെയാണ് ആക്രമണം ആഭ്യന്തര പ്രശ്നങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും കാരണം ആഫ്രിക്കൻമേഖല അശാന്തമാണ്

വിദേശകാര്യമന്ത്രി സുഷമസ്വരാജും മാലദ്വീപ് വിദേശകാരൃമന്ത്രി അബ്ദുള്ള ഷാഹിദും തമ്മിൽ ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം നൈപുണ്യ വികസനം ആരോഗ്യ സഹകരണം വ്യാപാരം നിക്ഷേപം സമ്പദ്വ്യവസ്ഥ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനിച്ചു രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സുഷമ സ്വരാജ് മാലദ്വീപിലെത്തിയത് മാലദ്വീപിൽ പുതിയ ഗവൺമെന്റ് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്

സി സ്വന്തമാക്കി എക്സ്ട്രാ ട്ട്രെമിലേക്ക് നീണ്ട മൽസരത്തിൽ ഗോവ എഫ് സി യെ എതിരില്ലാത്ത് ഒരു ഗോളിന് തകർത്താണ് ബംഗളുരു ടൂർണമെന്റിലെ ആദ്യ കീ്രീടം സ്വന്തമാക്കിയത്

എക്സ്ട്രാ ടൈം അവസാനിക്കാൻ നാല് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കേയാണ് ബംഗളുരു വിജയഗോൾ നേടിയത്

ഇത് രണ്ടാം തവണയാണ് എഫ് സി ഗോവ ഐ

എക്സ്ട്രാ ടൈമിൽ മധ്യനിര താരം അഹമ്മദ് ജഹോ ചുവപ്പുകാർഡ് കണ്ട് പുറത്തായത് ഗോവയ്ക്ക് വിനയായി

സെമിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ വീഴ്ത്തിയാണ് ബംഗളുരു ഫൈനലിൽ എത്തിയത്

എൽ അഞ്ചാം സീസണിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്ക്കാരം ഗോവയുടെ ഫെറാൻ കൊറോ വിനാസ് നേടി

സിയുടെ ഏകദിന് കാങ്കിങ്ങിൽ വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബൂംറ ഒന്നാട് സ്ഥാനത്ത് ഈയിടെ ആസ്ട്രേലിയക്കെതിരെ മികച്ച ബാറ്റിങ്ങ് പുറത്തെടുത്താണ് വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനം നിലനിർത്തിയത് രോഹിത് ശർമ്മയാണ് രണ്ടാം സ്ഥാനത്ത്

ബൌളർമാരിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ ഒന്നാം സ്ഥാനത്തെത്തി

ടീം റാങ്കിങ്ങിൽ ഇംഗ്ളണ്ട് ഒന്നാം സ്ഥാനം നിലനിർത്തി

ഇർഫാൻ

ജപ്പാനിലെ നോമിയിൽ നടന്ന ഏഷ്യൻ റേസ് വാക്കിങ് ചാമ്പ്യൻഷിപ്പിൽ ഇർഫാൻ നാലാം സ്ഥാനം നേടിയതോടെയാണ് ഒളിമ്പിക്സ് യോഗ്യത കരസ്ഥമാക്കിയത് ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഇതുവരെ മറ്റൊരു ഇന്ത്യൻ താരവും യോഗൃത നേടിയിട്ടില്ല ഇന്തൃയുടെ മറ്റ് രണ്ട് ചാമ്പ്യന്മാരായ ദേവിന്ദർ ഗണപതി എന്നിപ്പൂർ വാക്കിങ്ങിൽ ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്

നാവികസേന മേധാവി അഡ്മിറൽ സുനിൽ ലാംബയുടെ അദ്ധ്യക്ഷതയിലാണ് യോഗം

ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി നോർക്ക ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നുണ്ട്